നിധിയിലേക്ക് ഇന്ത്യ ഒരു കോടി ഡോളർ ആദ്യ സംഭാവനയായി നൽകുമെന്നും പ്രധാനമന്ത്രി

വിശ്വാസവോട്ടെടുപ്പ് നടക്കുമോ എന്ന കാര്യം സഭയിൽ അറിയിക്കാമെന്ന് സ്പീക്കർ

ഇന്ത്യ നിധിയിലേക്ക് ഒരു കോടി ഡോളർ ആദ്യസംഭാവനയായി നൽകാമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റുകളും പരിശോധനാകിറ്റുകളും മറ്റ് സാമഗ്രികളുമുൾപ്പെട്ട ദ്രുത പ്രതികരണ സംഘം ഇന്ത്യ രൂപീകരിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

ഇതിന്റെ ഏകോപനത്തിന് ഇന്ത്യൻ റിസർച്ച് മെഡിക്കൽ കൌൺസിലിന്റെ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു കൊറോണ ക്വൈറസ് വ്യാപനം നേരിടുന്നതിൽ ഇന്ത്യയുടെ അനുഭവവും പ്രധാനമന്ത്രി സാർക്ക് നേതാക്കളുമായി പങ്കുവെച്ചു

മൂന്നാറിൽ റിസോർട്ടിൽ താമസിച്ച ബ്രിട്ടീഷ് പൌരനും സ്പെയിനിൽ നിന്ന് പഠനകോഴ്സ് കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തിയ ഡോക്ടർക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്

ബ്രിട്ടീഷ് പൌരൻ കളമശേരി മെഡിക്കൽ കോളജിലും ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളജിലും ചികിത്സയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഒൻപതും തിരുവനന്തപുരത്ത് നാലും എറണാകുളത്ത് മൂന്നും കോട്ടയത്ത് രണ്ടും തൃശൂർ കണ്ണൂർ ഇടുക്കി ജില്ലകളിൽ ഓരോരുത്തരുമാണ് ചികിത്സയിൽ കഴിയുന്നത്

യാത്രക്കാർ വാഹനങ്ങളിൽ നിന്നിറങ്ങി പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി

തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് നിലവിൽ വൈറോളജി ലാബുകൾ ഉള്ളത്

മന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു

ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ വോയിസ് റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കഴിയുന്ന വിദേശികളുടെ യാത്രാവിവരങ്ങളെപ്പറ്റി അവർ താമസിക്കുന്ന സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ആർ ടി സിയുടെയും സ്വകാര്യ ബസ്സുകളുടെയും സർവ്വീസ് സാധാരണ നിലയിലാണെന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും ഉറപ്പു വരുത്തണം ഷോപ്പുകളും മാളുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കാനാവശ്യമായ നടപടി എടുക്കണം ജനങ്ങൾക്ക് സാധാരണ ജീവിതം നിലനിർത്തി പോകാനാവശ്യമായ എല്ലാ കാര്യങ്ങളും മുടക്കമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

അതിർത്തി കടന്നുവരുന്ന ട്രെയിനുകളിലെ പരിശോധന ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

കേരളമാണ് രണ്ടാം സ്ഥാനത്ത് ഉത്തരാഖണ്ഡിൽ ആദ്യ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തു

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വൈകിട്ടാണ് യോഗം

എന്നാൽ കോവിഡ് വ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ സംബന്ധിച്ച കാര്യങ്ങളും യോഗത്തിൽ വിഷയമാക്കാൻ തീരുമാനിക്കുക യായിരുന്നു രദേശ മുന്നാറിൽ താമസിച്ച ബ്രിട്ടീഷ് പൌരന് കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് മുൻ കരുതൽ നടപടി ശക്തമാക്കാൻ മന്ത്രി എം എം മണിയുടെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു ഇനി സ്വീകരിക്കേണ്ട നടപടികളും യോഗം ചർച്ച ചെയ്തു വിനോദ സഞ്ചാര മേഖലകളിൽ ഇടുക്കി ജില്ലാ ഭരണകൂടം നിയന്ത്രണ മേർപെടുത്തി

ആതിരപ്പള്ളി വെല്ലിംഗ്ടെൺ ചെറുതുരുത്തി അടിമാലി മൂന്നാർ എന്നിവിടങ്ങളിൽ ഇദ്ദേഹം സന്ദർശനം നടത്തിയതായി കണ്ടെത്തി

ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നു

ദേദ കണ്ണൂർ പരിയാരം ഗവ മെഡിക്കൽ കോളേജിൽ കൊറോണ സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ രണ്ടാമത്തെ പരിശോധന ഫലം നെഗറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചു ഇദ്ദേഹത്തിന്റെ അമ്മ ഭാര്യ എന്നിവരുടെ പരിശോധന ഫലവും നെഗറ്റീവ് ആണ് ദരദ ജില്ലയിൽ സ്ഥിതി നിയന്ത്രണവിധേയമാണെങ്കിലും ത്യശൂർ രോഗവ്യാപനത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് കൂടുതൽ പ്രതിരോധ നടപടികളുമായാണ് ആരോഗ്യ വകുപ്പ് നീങ്ങുന്നത് കൊറോണ ബാധിതനായ വിദേശി താമസിച്ച ചെറുതുരുത്തിയിലെ റിസോർട്ട് അടച്ചിടാൻ നിർദ്ദേശം നൽകി

രുദ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ആരോഗ്യ വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധന ഊർജ്ജിതമാക്കി

ദേഴ വിദേശങ്ങളിൽ നിന്ന് വരുന്നവർ ആരോഗ്യവകുപ്പിന്റെ നിർദേശങ്ങളിൽ വീഴ്ച വരുത്തരുതെന്നും നിയന്ത്രണങ്ങൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു

ദേദ ഖത്തർ മറ്റന്നാൾ മുതൽ വിമാന മാർഗ്ഗം രാജ്യത്ത് പ്രവേശിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി

സഭയിൽ ഇന്ന് വിശ്വാസവോട്ട് തേടാൻ ഗവർണർ ലാൽജി ടാന്റൺ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ വിശ്വാസവോട്ട് നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം സഭയിൽ അറിയിക്കാമെന്ന് സ്പീക്കർ എൻ

ദേഴ കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് രാവിലെ മന്ത്രി കെ രാജുവിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും വേങ്ങേരിയിലും കൊടിയത്തൂരും പക്ഷിപ്പനി നിയന്ത്രണവിധേയ മാക്കുന്നതിനായി ദ്രുതകർമ്മസേനയെ നിയോഗിച്ചിരുന്നു

കർണ്ണാടകയിൽ നിന്ന് വരുന്ന ചൂട് കാറ്റും കൃഷിക്ക് ദോഷകരമായി

സംശയമുള്ളവരെ ചോദ്യം ചെയ്തു വരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കൂടുതൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു